രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അൽപസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യും

പ്രധാനമന്ത്രിയും തിരുവനന്തപ്പൂർത്ത് മുഖ്യമന്ത്രിയും ദേശീയപതാക ഉയർത്തും പ സൈബർ തീവ്രവാദത്തിനെതിരെ ജാഗ്രത പുലർത്തുമെന്ന് ന് പ്രതിരോധമന്ത്രി

കവളപ്പാറയിൽ ഏഴ് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു

ലക്ഷം രൂപ ദുരന്തബാധിതർക്ക് പതിനായിരം രൂപയുടെ അടിയന്തിര ധനസഹായം

സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി രാജ്യതലസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്

എറണാകുളത്ത് മന്ത്രി വി

സുനിൽകുമാർ കോഴിക്കോട് എ

ശശീന്ദ്രൻ കണ്ണൂരിൽ ഇ

ജയരാജൻ മലപ്പുറത്ത് കെ

ഗവർണർ പി സദാശിവം കേരളീയർക്ക് സ്വാതന്ത്രദിനാശംസകൾ നേർന്നു

ആകാശവാണി വാർത്ത്കളുടെ ഔദ്യോഗിക യുട്യൂബ് ചാനലായ ന്യൂസ് ഓൺ എയർ ഒഫീഷ്യലിലും പരിപാടി ലഭ്യമാകും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ രാത്രി എട്ട് രാഷ്ട്രപതിയുടെ മണിക്ക് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും

സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാ സേനാവിഭാഗങ്ങളിലെയും അംഗങ്ങൾക്ക് സ്വാതന്ത്ര ദിനത്തിന്റെ ആശംസകൾ അദ്ദേഹം നേർന്നു സൈബർ തീവ്രവാദത്തിനെതിരെയും നിരന്തരം ജാഗ്രത പുലർത്തും ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ കേന്ദ്ര ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ച് വരികയാണ് പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീര സൈനീകരെയും ശ്രീ രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു

നിലമ്പൂർ കവളപ്പാറയിൽ ന്ടിന്ന് ഇന്ന് കണ്ടെത്തിയ ഏഴ് പേരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെയാണിത്

ഇന്നും തെരച്ചിൽ സജീവമായി തുടരുന്നു രൂക്ഷ്മാപ്രവർത്തനത്തിന് തടസം നേരിടുന്നതിനാൽ സന്ദർശക്ർക്ക് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി

പാലക്കാട് ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ ് സാധ്യത

ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്ലാതയാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്

തൊടുപുഴയാറിന്റെ മൂവാറ്റുപ്പുഴയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാക് ഭരണകൂടം മുന്നറിയിപ്പ് നൽകി

കോട്ടയം ജില്ലയിൽ മഴ തുടരുന്നു മീനച്ചിലാർ കരകവിഞ്ഞതിനെ തുടർന്ന് പാലാ ഈരാറ്റുപേട്ട റോഡിൽ ഉണ്ടായ ഗതാഗത തടസം തുടരുന്നു തീക്കോയി പൂഞ്ഞാർ ഈരാറ്റുപേട്ട മേഖലയിലും മഴ തുടരുന്നു

ഇന്നലെ മുതൽ ജില്ലയിൽ ഒറ്റപ്പെട്ട കനത്ത മഴയാണ് ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ശശിധരൻ

ജില്ലയിലെ മണ്ണൊലിപ്പ് സാധ്യത പരിശോധിക്ക്ടാൻ ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചു

കൊച്ചി നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും നല്ല മഴ ലഭിച്ചു

വീട് പൂർണമായും നഷ്ടപ്പെട്ടവർക്ക് നാല് ലക്ഷം രൂപ സഹായധനം നൽകും വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങിക്കാൻ ആറ് ലക്ഷം രൂപ ലഭിക്കും ഇവർക്ക് വീടിനും സ്ഥലത്തിനുമായി പത്ത് ലക്ഷം രൂപ ലഭിക്കും കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

മുന്നറിയിപ്പിന്റെ പ്രഭാഗമായി ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിച്ചു കൂടുംബങ്ങൾക്കും ഈ തുക ലഭിക്കും

നിലവിൽ സൌജനൃ റേഷൻ ലഭിക്കുന്നവർക്ക് ഇത് ലഭിക്കില്ല സമയബന്ധിതമായി ദുരിതാശ്വാസത്തിനുള്ള നഷ്ടപരിഹാരം നൽകാനും തീരുമാനങ്ങൾ എടുക്കാനും വ്യാപാര സ്ഥാപനങ്ങളുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച് ശുപാർശ നൽകാനും മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ശമ്പളവും അലവൻസും അടക്കം ഒരു ലക്ഷം രൂപയാണ് ഓരോരുത്തരും നൽകുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ശ്രീ പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിനുശേഷം അറിയിച്ചു

പാഠപുസ്തകങ്ങൾ അടിയന്തീരമായി ലഭിക്കുന്നതിനു വേണ്ട നടപടി ആരംഭിച്ചിട്ടുണ്ട് ൃസ്ർട്ടി്ഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവരുണ്ട്

ആധാർ കാർഡ് എസ്

എൽ സി റേഷൻ കാർഡ് വാഹന രജിസ്ട്രേഷൻ രേഖ ക്ട്രൈവിങ് ലൈസൻസ് രജിസ്ട്രേഷൻ സംബന്ധിച്ച രേഖകൾ ജനനമരണ വിവാഹ രേഖകൾ ഇ ഡിസ്ട്രിക്റ്റ് സംവിധാനത്തിലൂടെ ലഭിക്കുന്ന രേഖകൾ തുടങ്ങിയവയുടെ പകർപ്പ് സൌജനൃമായി ഈ അദാലത്തുകളിൽ നൽകും രമേശ് ചെന്നിത്തല കുട്ടനാട്ടിലെ പ്രളയ ബാധിത മേഖലയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം സന്ദർശനം നടത്തി ഗവൺമെന്റ് പ്രഖ്യാപിച്ച ദുരിതാശ്വാസം അപര്യാപ്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

രാഹുൽ ഗാന്ധി കാർഷിക വായ്പ തിരിച്ചടക്കുന്നതിനുള്ള കാലാവധി നീട്ടിനൽകണമെന്നാവശ്യപ്പെട്ട് വയനാട് എം പി രാഹുൽ ഗാന്ധി റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസിന് കത്തയച്ചു കഴിഞ്ഞ വർഷം കേരളത്തിലുണ്ടായ പ്രളയവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും കർഷക്ക്രര ബാധിച്ചിട്ടുണ്ടെന്നും തിരിച്ചടവ് മോറട്ടോറിയം ഡിസംബ്ലി്ട്ട് ട്ടി വരെ നീട്ടണമെന്ന ആവശ്യം കമ്മിറ്റി അംഗീകരിച്ചിട്ടില്ലാത്തിനാൽ റ്റ്സ്സർവ് ബാങ്ക് ഇടപെടണമെന്നും ആഗസറ്റ് ഒമ്പതിന് അയച്ച കത്തീൽ ശ്രീ രാഹുൽ പറഞ്ഞു

വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പൊലീസ് മെഡലിന് കോഴിക്കോട് റൂറൽ ജില്ലാ പൊലീസ് മേധാവി യു അബ്ദുൾ കരീം അർഹനായി

ജയിൽ ഉദ്യോഗസ്ഥർക്കുള്ള സ്തുത്യർഹ സേവന പുരസ്കാരത്തിന് വിയ്യൂർ വനിതാ ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് സജിത എൽ അർഹയായി

നിലവിലെ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടക്കുന്നതിനു പുറമേയാണ് സി ബി

കസ്റ്റഡി കൊലപാതകത്തിൽ അന്വേഷണം പരിതാപകരമാണെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശനം നടത്തിയിരുന്നു കേസിലെ നാലാം പ്രതി സിവിൽ പോലീസ് ഓഫീസർ സജീവ് ആന്റണിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത് ഒന്നാം പ്രതിയായ എസ് ഐ കെ

സാബ്ജൂവിനും കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു

ബഷീർ ് വാഹനാപകടത്തിൽ മിർണ്മടഞ്ഞ മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് ബഷീറിന്റെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ ധനസഹായം നൽകാൻ ് സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു ബഷീറിന്റെ ഭാര്യയ്ക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസൃതമായി മലയാളം സർവകലാശാലയിൽ ജോലി നൽകും

സി സി ജനറൽ സെക്രട്ടറി പി

കണ്ണൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പടയാളി പത്രത്തിന്റെ പത്രാധിപരായും അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് മരണം കൊല്ലം കുളത്തൂപ്പുഴ കടമാൻകോട്ടെ ഇഷ്ടികച്ചൂളയിൽ രണ്ട് തൊഴിലാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തി അരുവിക്കര സ്വദേശി ഭാസി ആര്യനാട് സ്വദേശി അശോകൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ രാവിലെ കണ്ടെത്തിയത് ചൂളയിൽ നിന്നുള്ള പുക്ക ശ്വസിച്ചതാകാം മരണത്തിനിടയാക്കിയതെന്നാണ് കുളത്തൂപ്പുഴ പോലീസ് കേന്റെടുത്തു സയന്റിഫിക് ഫോറൻസിക് വിദഗ്ധർ തെളിവുകൾ ശേഖരിച്ചു

വാസുദേവൻ നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്ന് ദീപം തെളിക്കും ശനിയാഴ്ച മുതലാണ് പൂജകൾ ആരംഭിക്കുക

കേരളയുടെ സി

ഇന്ന് വൈകിട്ട് നടന്ന മത്സരത്തിൽ എയർഫോഴ്സിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഗോകുലത്തിന് വേണ്ടി മാർക്കസ് രണ്ടും ഷിബിൽ മുഹമ്മദ് ഒരു ഗോളും സ്കോർ ചെയ്തു

വനിതാ വിഭാഗത്തിലും തെലങ്കാനയും തമിഴ്നാടും ഫൈനലിൽ ഓളം കായികതാരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും

എലിപ്പനി ജാഗ്രതാ നിർദ്ദേശം പ്രളയത്തോടനുബന്ധിച്ച് എലിപ്പനി ഉണ്ടാകാൻ സാധ്യതയുള്ള തിനാൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവരും സന്നദ്ധ പ്രവർത്ത കരും വീട് വൃത്തിയാക്കാൻ പോകുന്നവരും നിർബന്ധമായും പ്രതിരോധ ഗുളികകൾ കഴിക്കണമെന്ന് മന്ത്രി കെ

എലിപ്പനി ബാധിക്കാതിരിക്കാൻ അന്താരാഷ്ട്ര മാനദണ്ഡമനുസരിച്ച് പ്രതിരോധം ചികിത്സ സാമ്പിൾ കളക്ഷൻ എന്നിവയിൽ പാലിക്കേണ്ട നിബന്ധനകൾ ഉൾക്കൊള്ളിച്ചുള്ള പ്രോട്ടോകോൾ പ്രപ്പുഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രോട്ടോകോൾ എല്ലാ ആരോഗ്യൂ പ്ലവർത്തകരും കർശനമായി പാലിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കി

പുനർനിർമാണത്തിനായുള്ള നടപടികൾ എത്രയുംവേഗം സ്വീകരിക്കുമെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു